വികസന മാതൃകകളുമായി ഇന്ത്യ മുന്നോട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്ര സഭാ ഉച്ചകോടിയിൽ

ഗേറ്റ്സ് ഫൌണ്ടേഷൻ പുരസ്കാരം പ്രിയാനമന്ത്രി ഇന്ന് ഏറ്റുവാങ്ങും

വെങ്കയ്യ നായിഡു ഇന്ന് കേരള സന്ദർശനത്തിൽ

കോട്ടയ്ക്കലിൽ പി

ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്താസ്റ്റിക് ഇന്ത്യ നിരോധിച്ചുവെന്നും മറ്റു രാജ്യങ്ങൾക്കും അതേ മാതൃക പിന്തുടരാമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു

ദുരന്തങ്ങളെ അതിജീവിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങ് നിർമ്മിക്കുന്നതിൽ മറ്റു രാജ്യങ്ങളും പങ്കാളിയാവണമെന്നും പ്രിധാനമന്ത്രി നിർദ്ദേശിച്ചു ആഗോള ആരോഗ്യ നിലവാരത്തിലേക്ക് ്എത്താൻ ഇന്ത്യ സ്ഥീകരിച്ച മാർഗങ്ങളും ശ്രീ

ആരോഗ്യ സുരക്ഷ രോഗപ്രതിരോധം തുടങ്ങിയ്ക്കുക് ആരോഗ്യസുരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതീയ്ക് ്നടപ്പാക്കിയതായി പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഹൂസ്റ്റണിൽ നടന്ന ഐതിഹാസികമായ ഹൌഡി മോഡി സമ്മേളനത്തിനും ന്യൂയോർക്കിൽ നടന്ന ഐകൃരാഷ്ട്ര കാലാവസ്ഥാ വൃതിയാന ഉച്ചകോടിക്കും ശേഷം ഇത് മൂന്നാം തവണയാണ് ഇരുവരും കണ്ടുമുട്ടുന്നതെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ പസഫിക് ദ്വീപ് നേതൃത്വത്തിന്റെ സമ്മേളനത്തിൽ ശ്രീ

പിന്നീട് ഗാന്ധി സൌരോർജ്ജ പാർക്ക് ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമർപ്പിക്കും

ഓരോ പാനലും ഐക്യരാഷ്ട്ര സംഘടനയിലെ ഓരോ അംഗരാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് സച്ഛ് ഭാരത് അഭിയാൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ബിൽ മെലിന്റ ഗേറ്റ്സ് ഫൌണ്ടേഷൻ നൽകുന്ന പുരസ്കാരവും ശ്രീ

ജമ്മു കശ്മീരിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് വഴി തെളിയ്ക്കും ജയ്പൂരിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കോൺഗ്രസ്സിന്റെ കാശ്മീർ നയങ്ങൾ മൂലമാണ് കാശ്മീർ വിഷയം പിന്തള്ളപ്പെട്ടതെന്നും ശ്രീ ഗഡ്കരി പറഞ്ഞു

കഴിഞ്ഞ ആഴ്ച സാമ്പത്തിക കുറ്റകൃത്യ നിയമപ്രകാരം സാകിർ നായികിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു

സി നടത്തുന്ന സർവ്വീസിന്റെ കന്നി ഓട്ടത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പച്ചക്കൊടി വീശും വിമാനത്തിലേതിന് സമാനമായ സൌകര്യങ്ങളാണ് തേജസ് എക്സ്പ്രസ്സിലുള്ളതെന്ന് ഐ

സി ചീഫ് റീജിയണൽ മാനേജർ അശ്വിനി ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു

എ

ഏഴാമത് ഇന്ത്യ യു എ ഇ സംയുക്ത നിക്ഷേപക സംഗമത്തിനെത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി

ഇ കമ്പനികൾക്ക് ലൈസൻസും അനുമതിയും നൽകിയിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു

എ

നിക്ഷേപക സംഗമത്തിന്റെ ഭാഗമായി ശ്രീ പീയുഷ് ഗോയൽ അബുദാബി കിരീടാവകാശി ഷേക്ക് ഹാമിദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി ചർച്ചയും നടത്തി

ഇന്നലെ ന്യൂഡൽക്റിയിൽ ജൻഗണന ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ

മൊബൈൽ ആപ്പ് പോലുള്ള മാർഗ്ഗങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് കുടുംബവിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന വിപ്തവകരമായ പരിഷ്ക്കാരമാണ് ലക്ഷ്യമിടുന്നത് ശേഖരിക്കുന്ന വിവരങ്ങൾ കടലാസ് രൂപത്തിലല്ലാത്തിനാൽ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുമെന്നും ശ്രീ

കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒരാൾ എന്ന നിലയിലാണ് പി എസ് വാരിയരെ ഓർക്കുന്നത് ഉപരാഷ്ട്രപതി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം കോട്ടക്കലിൽ എത്തും തിരിച്ചും നിരത്ത് വഴിയാണ് യാത്ര സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാന കവലകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വിമാനത്താവളം കൊട്ടപ്പുറം പള്ളിക്കൽ ബസാർ കാക്കഞ്ചേരി കോട്ടക്കൽ പ്രദേശങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

അടുത്ത മാസം ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വീരും കേന്ദ്ര സായുധ സേനകൾ അടക്കം എല്ലാ ഗവൺമെന്റ് ജീവ്യ്ക്ക്കാർക്കും ഭേദഗതി ബാധകമാണ്

പൊതു പോലീസ് ചെലവ് നിരീക്ഷകർക്കാണ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശം

എസ് ഐ

എസ് അടക്കമുള്ള അഞ്ഞൂറോളം ഉദ്യോഗസ്ഥർ പ്രത്യേക യോഗത്തിൽ സംബന്ധിച്ചു

വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ബി ജെ പി എം എൽ എ അശോക് കുമാർ സിങ്ങ് ചന്ദലിനെ അയോഗൃനാക്കിയതിനെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ

ഇന്ത്യയെ ഹർമൻപ്രീത് കൌർ നയിക്കും സ്മൃതി മന്ദാന ശിഖാ പാണ്ഡെ പൂജാ വസ്ത്രാകർ പൂനം യാദവ് എന്നിവർ ടീമിലുണ്ട് ഓൾ റൌണ്ടർ ആയ സുനെയ് ല്യൂസ് ദക്ഷിണാഫ്രിക്കയെ നയിക്കും

അമേരിക്ക ടർക്കി ക്യൂബ ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നീന്നുള്ള ഒരു ലക്ഷത്തി അൻപതിനായിരം വിനോദസഞ്ചിര്രികളെയാണ് ആദ്യപടിയായി നാട്ടിലെത്തിക്കുന്നത്